ബജറ്റിലെ പുതിയ പ്രഖ്യാപനങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വൃവസ്ഥക്ക് ഉത്തേജനം നൽകുമെന്നും ഓരോ പൌരനെയും സാമ്പത്തികമായി ശാക്തീകരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി

രാജ്യത്ത് കൊറോണ്ണ ഐവറസ് ബാധയെ നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പ് കേന്ദ്ര ആരോഗൃമന്ത്രി ഡോ

ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഇന്ന് കലാശപ്പോരാട്ടം

ബജറ്റ് സമ്പദ്വൃവസ്ഥയുടെ അടിത്തറ ശക്തിപ്പെടുത്തുമെന്നും ഓരോ പൌരനും സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി കൃഷി അടിസ്ഥാന സൌകര്യം ടെക്സ്റ്റൈൽസ് സാങ്കേതിക വിദ്യ എന്നീ നാല് മേഖലകൾക്കും ബജറ്റിൽ മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട്

വ്യക്തമായ കാഴ്ച്ചപ്പാടും ദീർഘവീക്ഷണ്പുമുള്ള ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമനെയും സംഘത്തെയും ശ്രീ നരേന്ദ്രമോദി അഭിനന്ദിച്ചു

ന്യൂഡൽഹിയിൽ കേന്ദ്രബജറ്റ് അവതരണത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ആദായ നികുതിയുടെ നടപടിക്രമങ്ങൾ ലളിതവത്ക്കരിക്കുന്നതിനുമാണ് ശ്രമം സത്യസന്ധരായ നികുതിദായകരെ ബഹുമാനിക്കുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് ഇതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പ് എന്ന നിലയിലാണ് നികുതിദായക ചാർട്ടർ അവതരിപ്പിച്ചതെന്നും ശ്രീമതി നിർമല സീതാരാമൻ വ്യക്തമാക്കി കോർപ്പറേറ്റ് നികുതി കുറച്ചതും ജി

ടി വരുമാനം മെച്ചപ്പെട്ടതും രാജ്യത്തെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു

പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തോട് പുലർത്തിയ അതേ രാഷ്ട്രീയ സമീപനമാണ് ബജറ്റിന്റെ കാരൃത്തിലും ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു

അതേസമയം ഇന്ത്യാക്കാരെ നാട്ടിലെത്തിക്കാനുള്ള രണ്ടാമത്തെ വിമാനം ഇന്നലെ യാത്രതിരിച്ചു

അതേസമയം കൊറോണ വൈറസ് ബാധയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിന് മൂന്ന് പേരെ തൃശൂരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു

കേരളത്തിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്ത രോഗിയുടെ നില നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു

മാലദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മൊഹമ്മദ് സോലിഹിനെയും സ്പീക്കർ മൊഹമ്മദ് നഷീദിനെയും മാലദ്വീപ് നിവാസികളെയും പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു

വാർഷികമേള രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തു ഇന്തൃ ഉസ്ബക്കിസ്ഥാൻ ബന്ധം ശക്തിപ്പെടുത്തു ന്നതിനായുള്ള ഇത്തരം പരിപാടികൾക്ക് പിന്തുണ നൽകുന്ന ഉസ്ബക്കിസ്ഥാൻ പ്രസിഡന്റ് ശവ്കാത് മിർസിയോയേവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ നന്ദി അറിയിച്ചു

ഗവൺമെന്റിന് എതിരായി നാലു മാസം നീണ്ട പ്രതിഷേധങ്ങൾക്കും രണ്ടു മാസം മുമ്പ് മുൻ പ്രധാനമന്ത്രി അദൽ അബ്ദുൾ മെഹ്ദിയുടെ സ്ഥാനമൊഴിയലിനും പിന്നാലെയാണ് പുതിയ നിയമനം

ക്രിക്കറ്റ് പരമ്പരയിലെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ മത്സരം ഇന്ന് മൌണ്ട് മോംഗനൂയിൽ

മൂന്ന് മത്സരങ്ങളുള്ള പരമ്പയിലെ ഇന്ത്യയുടെ രണ്ടാമത്തെ മത്സരമാണിത്

ആദ്യമത്സരത്തിൽ ഇന്ത്യ അഞ്ച് വിക്കറ്റിന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിരുന്നു

നിലവിലെ ചാമ്പൃനായ ജോക്കോവിച്ചിന് ഇത് എട്ടാം കിരീടത്തിനുള്ള പോരാട്ടമാണ് സെമിയിൽ മൂന്നാം സീഡായ റോജർ ഫെഡററെ മറികടന്നാണ് ജോക്കോവിച്ച് ഫൈനലിൽ എത്തിയത് ഓസ്ട്രേലിയൻ ഓപ്പൺ പ്രസ്തിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ സോഫിയ കെന്നു് ഇന്നലെ നടന്ന ഫൈനലിൽ സ്പെയിനിന്റെ ഗാർബിനെ മുശ്ശൂരൂസ്യെയാണ് ഒന്നിനെതിരെ രണ്ട് സെറ്റുകൾക്ക് സോഫിയ തോർപിച്ചത്

ദേശീയ അന്തർദേശീയ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ കേരളത്തിലെ കുട്ടികൾക്ക് മികച്ച പരിശീലനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം

കണ്ണൂർ പയ്യാമ്പലത്ത് ് സ്ംസ്ഥാന ബീച്ച് വോളിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയ്ായിരുന്നു അദ്ദേഹം തീരദേശ മേഖലയിൽ നമുക്ക് വിപുലമായ വിനോദ സഞ്ചാര സാധ്യതകളാണുള്ളത്

ആദിത്യനാഥിന്റെ നാല് ദിവസത്തെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി